ലോക്സഭ തെരഞ്ഞെടുപ്പിലെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു

അഞ്ചാംഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും

യേശു ക്രിസ്തുവിന്റെ അന്തൃ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു

ഐ

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് വിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തി

കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ

എന്നാൽ അനധികൃതമായി പണം കണ്ടെത്തിയതിനെ തുടർന്ന് തമിഴ്നാട് വെല്ലൂരിൽ ഇന്ന് നടക്കാനിരുന്ന വോട്ടെടുപ്പ് റദ്ദാക്കുകയായിരുന്നു ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പും മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്

മഥുരയിൽ കല്ലഴകർ ആഘോഷത്തോട് അനുബന്ധിച്ച് വോട്ടിംഗ് സമയം രാത്രി എട്ട്മണി വരെ നീട്ടിയിട്ടുണ്ട് ഹേമമാലിനി രാജ് ബബർ അശോക് ചവാൻ സുശീൽ കുമാർ ഷിൻഡേ തുടങ്ങിയവരാണ് ജനവിധി തേടുന്ന പ്രമുഖർ സിനിമാതാരം ശത്രുഘൻ സിൻഹയുടെ ഭാര്യ പൂനം സിൻഹാ സമാജ് വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി മുതിർന്ന ബി ജെ പി നേതാവ് രാജ് നാഥ് സിംഗിനെതിരെ ലഖ്നൌവിൽ മത്സരിക്കും ന്യൂസ്ഡെസ്ക് ആകാശവാണി

അടുത്ത തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഗുജറാത്തിലേയും മഹാരാഷ്ട്രയിലേയും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു കനത്ത മഴയും കൊടുങ്കാറ്റും കാരണം ദുരന്തം ് നേരിടുന്ന കർഷകർക്കൊപ്പം ഗവൺമെന്റ് നിലകൊള്ളുമെന്ന് പ്രധാനമുന്നി പറഞ്ഞു

കഴിഞ്ഞ അഞ്ച് പ്പൂർഷത്തെ ഭരണം ലോകം ബഹുമാനിക്കുന്ന രാജ്യമാക്കി ഇന്ത്യയെ മ്മീറ്റിൽയന്ന് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നടന്ന റാലിയിൽ രാജ്നീജ് സിംഗ് പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി കണ്ണൂർ വയനാട് ജില്ലകളിലെ പ്രചാരണ റാലികളിൽ പങ്കെടുത്തു സാമ്പത്തിക പ്രതിസന്ധി അഴിമതി ആരോപണങ്ങൾ കാർഷിക വിളകളുടെ വിലയിടിവ് തുടങ്ങിയ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അധികാരത്തിലെത്തിയാൽ ജമ്മു കശ്മിരിന്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു

പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്

സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രാലയം ടിറ്ററിൽ അറിയിച്ചു

നിയമ വൃവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ഈ നടപടിക്രമങ്ങളെ മന്ത്രാലയം പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പണം തിരിച്ചടയ്ക്കൽ ടിക്കറ്റ് റദ്ദാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ ജനറ്റൽ നിരീക്ഷിച്ചുവരികയാണ് എയർ സേവ പോർട്ടൽ മൊബൈൽ ആപ്പ് എന്നിവയിൽ ലഭിക്കുന്ന യാത്രക്കാരുടെ പരാതിയിൽ എത്രയുട്ടവേഗം നടപടിയുണ്ടാകുമെന്നും അറിയിച്ചു

നിയമവിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ഡേറ്റാ റിപ്പോസിറ്ററിയും അതിന്റെ സെർവറുകളും പൂർണസുരക്ഷിതമാണെന്നും യു ഐ ഡി എ ഐ പ്രസ്താവനയിൽ അറിയിച്ചു ആധാർ നമ്പറുകൾ ഒരു ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തതായുള്ള തെലങ്കാന പൊലീസിലെ അന്വേഷണസംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആധാർ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട് സെർവറുകളിൽ നിന്ന് ആധാർ നമ്പർ വൃക്തികളുടെ പേര് വിലാസം എന്നിവ മോഷ്ടിച്ചതിന് യാതൊരു തെളിവും പ്രത്യേക അന്വേഷണസംഘം കണ്ടെത്തിയിട്ടില്ല

ഇടിമിന്നലും ശക്തമായ കാറ്റും സാധാരണ ജനജീവിതത്തെ ബാധിച്ചു

ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർഥനകൾക്കൊപ്പം തിരുവത്താഴ കർമ്മങ്ങളും കാൽകഴുകൽ ശുശ്രൂഷയുട്ടു നടക്കും

ക്രിസ്ത്ുവിന്റെ വഴി പീഡാസഹനവും കുരിശുമരണവും ഉയർത്ത്തിച്ചു്ന്നേൽപ്പും അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണം ഞായറാഴ്ച്ച് ഇ്ൌസ്റ്ററോടെ സമാപിക്കും

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറുവിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെടുത്തി

അർധ സെഞ്ചറി കുറിച്ച ഓപ്പണർമാരായ ജോണി ബെയർസറ്റോയും ഡേവിഡ് വാർണറുമാണ് ഹൈദരാബാദിനെ വിജയത്തിലെത്തിച്ചത്

പ്രധാനമന്ത്രി ഉൾപ്പടെയുള്ള ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം കൂടുതൽ വിവരങ്ങളുമായി അരുൺ കുമാർ വോയിസ് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി ആറ് മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്

ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് നേതൃത്വം നൽകുന്നത് വൈകിട്ട് മലപ്പുറം എടപ്പാളിലും കുറ്റിപ്പുറത്തും നടക്കുന്ന റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും

ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനായി മുതിർന്ന് പ്രക്യോൺഗ്രസ് നേതാവ് എ

ആന്റണി വെള്ളിയാഴ്ച നെയ്യാറ്റിൻക്ക്രയിലെത്തും ന്യൂസ് ഡെസ്ക് ആകാശ്പാണി

വെടിവെയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല

തീവ്രവാദികൾ ശക്തമായ വെടിവയ്പ്പിന് ശേഷം ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു സി ആർ പി എഫ് ശക്തമായി തിരിച്ചടിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല

ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം മുതൽ വയനാട് വരെ ഇടിമിന്നലോടെ മഴ ലഭിച്ചു വേനൽ മഴ സാധാരണ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ലഭിക്കാറുള്ളതെങ്കിലും ഇന്നലെ വ്യാപകമായി മഴ പെയ്തു വേനൽമഴ അഞ്ച് ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഇരുവരും വിട്ടിന്റെ പിന്നിലെ വരാന്തയിൽ നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ട്ടുടയ്ത്

ജർമ്മൻ സ്വദേശികളുടെ മരണം ലിസ്ബണിലെ എംബസി സ്ഥിരീകരിച്ചിട്ടുണ്ട്

ബുദ്ധിസ്റ്റ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് തടവുകാരെ മോചിപ്പിക്കുന്നതെന്ന് മ്യാന്മർ പ്രസിഡന്റ് അറിയിച്ചു